നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റും പിടിച്ചു നിർത്താൻ വിപണി ഇടപെടൽ ഗവൺമെന്റ് ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

വിക്രം ലാന്റർ നാളൊപുലർച്ചെ ചന്ദ്രനെ സ്പർശിക്കും പാലായിൽ ജോസ് ടോമിന് രണ്ടില ചിഹ്നം ലഭിച്ചില്ല

അവസാന ഏകദിന മത്സരം ഇന്ന് ൾ ൽ ൾ സംസ്ഥാന ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ രാവിലെ രാജ്ഭ വനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും രാജ്ഭവൻ ഓഡി റ്റോറിയത്തിൽ കേരളാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൃഷികേഷ് റോയി അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ടോം ജോസ് നിയുക്ത ഗവർണറുടെ പത്നി രേഷ്മാ ആരിഫ് വിശിഷ്ട വൃക്തികൾ തുടങ്ങിയവർ പങ്കെടുക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പ്പിടിച്ചുനിർത്താൻ വിപണിയിലെ ഗവൺമെന്റ് ഇടപെടൽ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഈ ഇടപെടൽ കൂറേക്കൂടി ശക്തമാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേ ശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു കൃഷിവകുപ്പിന്റെ ഓണസമൃദ്ധി കാർഷിക വിപണിയുടെ സംസ്ഥാ നതല ഉദ്ഘാടനം തിരുവനന്തപുരം പാളയത്ത് നിർവ്വഹിക്കുകയാ യിരുന്നു അദ്ദേഹം ഭൌമസൂചികാ പദവി ലഭിച്ച ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുല ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു ഇന്തൃയുടെ രണ്ടാം ചന്ദ്രയാൻ ദൌതൃം പൂർത്തിയാകാൻ ഇനു മണിക്കൂറുകൾ മാത്രം നാളെ പുലർച്ചെ ഒന്നരക്കും രണ്ടരക്കുമിട യിൽ വിക്രം ലാൻ്റർ ചന്ദ്രനെ സ്പർശിക്കും

സോഫ്റ്റ് ലാന്റിങ്ങിലൂടെ ചന്ദ്രന്റെ ദക്ഷിണ് ധ്രുവത്തിൽ ഇറക്കുന്ന വിക്രം ലാന്ററിൽ നിന്ന് പ്രഗ്യാൻ റോവർ ചന്ദ്രന്റെ ഉപരിതലം തൊടും ചന്ദ്രനിലെ പാറയുടേയും മണ്ണിന്റേയും ഘടന പഠിക്കാനും രസ തന്ത്ര പഠനം നടത്താനും മൂന്ന് കൃാമറകളും മറ്റ് ആധുനിക സംവി ധാനങ്ങളും പ്രഗ്യാനിൽ ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചന്ദ്രയാൻ ദൌതൃ പൂർത്തീകരണത്തിന് സാക്ഷിയാവാൻ ബെങ്കലൂരു ഇസ്രോ കേന്ദ്രത്തിലെത്തും

പാർട്ടി സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം സമർപ്പിച്ച നാമ നിർദേശ പത്രിക തള്ളി എന്നാൽ കക്ഷി രഹിതൻ എന്ന നിലയിൽ നൽകിയ പത്രിക സ്വീകരിച്ചു പാലായിൽ ചേർന്ന യുഡിഎഫ് നിയോജകമണ്ഡലം കൺവെൻഷനിൽ പി

ജോസഫ ടക്കം നേതാക്കൾ പങ്കെടുത്തു എൽഡിഎഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ ബൂത്ത് തല കൺവെൻഷനുകൾ തുടരുകയാണ് എൻഡിഎ സ്ഥാനാർത്ഥി എൻ ഹരിയുടെ നിയോജകമണ്ഡലം കൺവെൻഷൻ നാളെ നടക്കും കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിലും പാലക്കാട് ഗുരുവാ യൂർ ആലപ്പുഴ മുനിസിപ്പാലിറ്റികളിലും നടപ്പാക്കുന്ന് അമൃത് പദ്ധതി യുടെ നിർവ്വഹണ പുരോഗതിയിൽ ക്യേന്ദ്ര നഗർകാര്യമന്ത്രാലയ സെക്രട്ടറി സംതൃപ്തി അറിയിച്ചു തിരുവ്നന്തപുരത്ത് ചേർന്ന പദ്ധതി പുരോഗതി അവലോകന യോഗത്തിലാണ് പദ്ധതി നടത്തിപ്പ് വിലയി രുത്തിയത്

ശ്രീധരൻ പിള്ള ആലപ്പുഴയിൽ അറി യിച്ചു

ഇവരുടെ പട്ടിക പ്രത്യേകം പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടൈറ്റാനിയം കേസ് ഗൂഢാലോചനയാണെന്ന് പറ യുന്നത് അഴിമതിക്കാരാണെന്നും ശ്രീധരൻ പിള്ള അഭിപ്രായപ്പെട്ടു മുതിർന്ന ബിജെപി നേതാവ് എൽ

അദ്വാനിയുടെ ആലപ്പുഴ സന്ദർശനം തുടരുന്നു ഇന്നലെ അദ്ദേഹത്തിനായി പുന്നമടക്കായ ലിൽ ചുണ്ടൽ വള്ളത്തിന്റെ പ്രദർശന തുഴച്ചിൽ സംഘടിപ്പിച്ചിരുന്നു കേരള പൊലീസ് ടീമാണ് കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞത് കഴിഞ്ഞ ദിവസം അദ്ദേഹം കലവൂരിലെ കയർ മ്യൂസിയവും സന്ദർശിച്ചു പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി നാശത്തിന് കാരണം തെറ്റായ വിക സന നയങ്ങളാണെന്ന് പ്രൊഫ മാധവ് ഗാഡ്ഗിൽ അഭിപ്രായപ്പെട്ടു പ്രകൃതി വിഭവങ്ങൾ ലാഭം മാത്രം പരിഗണിച്ച് വ്യവസായ ആവശ്യ ങ്ങൾക്കായി ചൂഷണം നടത്തിയതാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥി

വയ നാട്ടിലെ പരിസ്ഥിതി സംഘടനകളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച പശ്ചിമഘട്ട വികസനവും വയനാടിന്റെ ഭാവിയും എന്ന പ്രഭാഷണ ത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഉപജീവനത്തിന് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്നവ രല്ല യഥാർത്ഥത്തിൽ പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്നത് വിക സന പദ്ധതികളും നയങ്ങളും മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചേൽപ്പി ക്കുകയാണെന്നും ഗാഡ്ഗിൽ വിലയിരുത്തി ഐഎൻഎക്സ് മീഡിയ അഴിമതി കേസിൽ ജുഡീഷ്യൽ കസ്റ്റ ഡിയിൽ റിമാന്റ് ചെയ്ത മുൻ കേന്ദ്രമന്ത്രിയും ്കോൺഗ്രസ് നേതാ വുമായ പി ചിദംബരത്തെ തിഹാർ ജയിലിലേക്ക് മാറ്റി

ജയിലിലെ ഏഴാം നമ്പർ സെല്ലിലാണ് അദ്ദേഹത്തെ താമസിപ്പിച്ചിരിക്കുന്നത് ജയിലിൽ പ്രത്യേക പരിഗണ നകൾ ഇല്ലെങ്കിലും ലൈബ്രറി ഉപ്പയോഗിക്കാനും നിശ്ചിത സമയം ടെലിവിഷൻ കാണാനും ചിദംബരത്തിന് അനുമതിയുണ്ട് തിരുവനന്തപുരത്ത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എ ടീമുകളുടെ നാലാം ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കക്ക് നാല് റൺസ് വിജയം

മൂന്ന് മത്സരം വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു അവസാന ഏകദിന മത്സരം ഇന്ന് നടക്കും രാവിലെ ഒൻപതിന് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിലാണ് അഞ്ചാം ഏകദിനം ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി ഗുവാഹട്ടിയിൽ ഒമാനോടാണ് ഒന്നിനെതിരെ രണ്ട് ഗോളിന് ഇന്ത്യ പരാജയപ്പെട്ടത് ഇന്ത്യയുടെ അടുത്ത മത്സരം ചൊവ്വാഴ്ച്ച ഖത്തറുമായിട്ടാണ്

തിരുവനന്തപുരത്തെ തോൽപ്പിച്ചാണ് ചേലേമ്പ്ര ഹയർ സെക്കന്ററി കേരളത്തെ പ്രതിനിധീകരിക്കുന്നത്

രണ്ട് ദിവസം പ്രാഥമിക റൌണ്ട് മത്സര വും ഞായറാഴ്ച്ച ക്വാർട്ടർ സെമി മത്സരങ്ങളും സിൽവർഹിൽസ് സ്കൂളിൽ നടത്തും

യുഎസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ മുൻ ചാമ്പ്യൻ സെറീന വിലൃംസ് ഫൈനലിൽ സെമിയിൽ ഉക്രൈൻതാരം എലിന സ്വിറ്റോലിന യെയാണ് സെറീന തോൽപ്പിച്ചത്

ഇവരുടെ പരിശോധനക്ക് ശേഷമായിരിക്കും നഷ്ട പരിഹാരവും ധനസഹായവും നിശ്ചയിക്കുന്നത്

ചാല മാർക്കിറ്റിന് സമീപത്തെ പൂക്കണ്ടി സരോജിനി ആണ് മരിച്ചത്

വീട്ടിലു ണ്ടായിരുന്ന സഹോദരൻ രാജൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെ ട്ടു ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്നു ശക്തമായി പെയ്യുന്ന മഴയെ തുടർന്ന് അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു പല പ്രദേശ ങ്ങളും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ്

പരമാവധി സംഭരണ ശേഷിക്ക് തൊട്ടു താഴെയാണ് ഇപ്പോൾ ജലനിരപ്പ് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തൃശൂരിലെ ചിമ്മിനി ജല സംഭരണി രാവിലെ തുറക്കും

എം ജെ ബോണാമി കോട്ടമല തോട്ടങ്ങളിലേയും പീരു മേട് ടീ കമ്പനി എന്നിവിടങ്ങളിലെ നാല് ഡിവിഷനിലേയും തൊഴി ലാളികൾക്ക് ആനൂകൂല്യം ലഭിക്കും വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രമോഷൻ കൌൺസിലിന്റെ സംസ്ഥാ നത്തെ ആദ്യ ഔട്ട്ലെറ്റ് തളിർ ഇന്ന് കൊല്ലം കടപ്പാക്കടയിൽ മന്ത്രി വി

സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യൂ

സ്വാശ്രയ കർഷക സമിതികളിലെ അംഗങ്ങളിൽ നിന്ന് സംഭരിക്കുന്ന പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് ഔട്ട്ലെറ്റുകളിലൂടെ വിൽക്കുന്നത് കോഴിക്കോട് ചേവായൂർ ടെസ്റ്റ് ഗ്രൌണ്ടിലെ ഡ്രൈവിങ്ങ് പരിശീ ലന കേന്ദ്രം മന്ത്രി എ

ശശീന്ദ്രൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം നന്മണ്ടയിൽ സപ്ലൈകോ ഓണം മാർക്കറ്റ് മന്ത്രി തുറന്നു കൊടുക്കും വൈകീട്ട് മുഖൃമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി യിലേക്ക് ചെക്ക് കൈമാറുന്ന ചടങ്ങിലും കക്കോടിയിലെ നവീക രിച്ച ബൈപ്പാസ് റോഡ് ഉദ്ഘാടന പരിപാടിയിലും മന്ത്രി പങ്കെടു ക്കും കണ്ണൂർ ജില്ലാതല ഓണോത്സവം നാളെ വൈകീട്ട് ടൌൺ സ്ക്വയ റിൽ മന്ത്രി ഇ

ജയരാജൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ രാമ ചന്ദ്രൻ കടന്നപ്പള്ളി കെ

ശൈലജ മേയർ എംപി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും

മറ്റന്നാൾ മന്ത്രി ഡോ

ജലീൽ അതളൂരിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് ഓഫീസുകളിൽ നൽകേണ്ട അപേ ക്ഷകളും രേഖകളും തയാറാക്കാനും സമർപ്പിക്കാനും വായനശാല കളിൽ സൌകര്യം ഏർപ്പെടുത്തും

ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി കെഎഫ്ബി ആസ്ഥാനത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട്ടിൽ നിന്ന് ജീപ്പിൽ കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച കഞ്ചാവ് എക്സൈസ് പിടികൂടി കമ്പംമെട്ട് എക്സൈസ് ചെക്പോ സ്റ്റിലെ വാഹന പരിശോധനിയിലാണ് കട്ടപ്പന സ്വദേശിയായ ബിജു ജോണിനെ കഞ്ചാവ് സഹിതം പിടികൂടിയത്